ന്യൂഡെൽഹിയിലെ രാംലീല മൈര്ത്മ്നിയിൽ നടക്കുന്ന റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദീപ്പ് അല്പകസമയത്തിനകം അഭിസംബോധന ചെയ്യും

ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും

ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം കട്ടക്കിൽ ആരംഭിക്കും

നാഗ്പൂരിൽ ബി ജെ പി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പൌരത്യൂട്ട് ട്ട്രേദ്ഗതി നിയമം രാജ്യത്തെ പൌരന്മാരായ മുസ്തീം സമുദായത്ത്പെട്ടുരു് തരത്തിലും ബാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

ജെ പി സംഘടിപ്പിക്കുന്ന റാലിയിൽ ബി ജെ

ജെ

പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് ജെ

അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഭേദഗതി നിയമത്തെക്കുറിച്ച് മൂന്ന് കോടിയിലധികം കുടുംബങ്ങളെ ബോധവത്കരിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ഭൂപേന്ദ്ര യാദവ് ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

പ്രസ്താവനയിൽ ഒപ്പിട്ടവരിൽ രാജ്യസഭാംഗം സ്വപൻ ദാസ്ഗുപ്ത ഷിഷിർ ബജോരിയ ഷില്ലോംഗ് ഐ ഐ എം ചെയർമാനായ സുനൈന സിംഗ് നളന്ദ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ജെ

പ്രൊഫസറായ ഐനുൾ ഹസൻ അഭിജിത് അയ്യർ മിത്ര പത്രപ്രവർത്തകനായ കാഞ്ചൻ ഗുപ്ത എന്നിവരുൾപ്പെടുന്നു സംയമനം പാലിക്കണമെന്നും സംഘടിത പ്രചാരണങ്ങൾക്കും വർഗ്ഗീയതയുടേയും അരാജകത്വത്തിന്റെയും കെണിയിൽ വീഴരുതെന്നും സമൂഹത്തിലെ എല്ലാ മേഖലകളിലുള്ളവരോടും ഇവർ അഭ്യർത്ഥിച്ചു പൌരത്വ ഭേദഗതി ബിൽ പാസാക്കിയ പാർലമെന്റിനെ അഭിനന്ദിക്കുകയും ചെയ്തു

ഐ എം മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് മന്ത്രാലയം ട്വിറ്ററിലൂടെ വൃക്തമാക്കി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ സമൂഹമാധ്യമങ്ങളിൽ പങ്ക് വയ്ക്കുന്ന പോസ്റ്റുകൾ നിരീക്ഷിക്കാൻ ഗവൺമെന്റ് നിർദ്ദേശിച്ചതായുള്ള മാധ്യമവാർത്തകളെ തുടർന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം വസ്തുതകൾ ശരിയായി പ്പീല്യയിരുത്താതെ വാർത്തകൾ നൽകുന്നത് ശരിയല്ലെന്ന് മന്ത്രാലയം വൃക്ടിക്തമാക്കി

ഭരണകക്ഷിയായ ബിജെപിക്ക് എതിരെ ജെഎംഎം കോൺഗ്രസ് ആർജെഡി പാർട്ടികൾ സഖ്യമാണ് മത്സരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഹേമന്ദ് സോറൻ ബിജെപി നേതാവും വനിതാ ശിശുക്ഷേമമന്ത്രിയുമായ ലൂയിസ് മറാണ്ടി കൃഷിമന്ത്രി രന്ദീർ സിങ് എന്നിവരാണ് ഇത്തവണ മത്സരിക്കുന്നതിൽ പ്രമുഖർ

ടി നിരക്കുകൾ എല്ലാ വർഷവും ഒരു തവണ പരിഷ്ക്കരിക്കുന്ന കാര്യം പരിഗണിച്ചു വരികയാണെന്ന് ജി എസ് ടി മന്ത്രിതല സമിതി കൺവീനറും ബിഹാർ ഉപമുഖ്യമന്ത്രിയുമായ സുശീൽകുമാർ മോദി പറഞ്ഞു ന്യൂഡൽഹിയിൽ ഫിക്കിയുടെ വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ ജി

കൌൺസിൽ യോഗത്തിലും നികുതി നിരക്ക് പരിഷ്ക്കരിക്കുന്ന നടപടി നിർത്തലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളൊന്നും തന്നെ ജി

നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് ആലോചിച്ചിട്ടില്ല നികുതി വരുമാനത്തിൽ സ്ഥിരത കൈവരുന്നതുവരെ ജി എസ് ടി നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്നും സ്കൂൾട്ടീൽകുമാർ മോദി പറഞ്ഞു

ഹിമാലയവുമായി അതിരിടുന്ന സംസ്ഥാനങ്ങളിൽ ജനജീവിതം ദുസ്സഹമായി കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി

ഹിമാചൽ പ്രദേശിലെ കീലോംഗിലാണ് സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്

അമൃത്സർ ലുധിയാന പട്യാല ബത്തിൻഡ ഹിസാർ കർണാൽ സിർസ എന്നിവിടങ്ങളിലും കനത്ത ശൈത്യം കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്

രാഷ്ട്ര നിർമാണത്തിന് യുവാക്കളുടെ പങ്ക് പ്രയോജനപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണിത്

നെഹ്റു യുവകേന്ദ്ര ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന പദ്ധതിക്കുവേണ്ടി രാജ്യത്തിന്റെ അഖണ്ഡതയേയും നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പത്തെയും പിന്തുണച്ച് ഒരു വർഷം നീളുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്

ജയ്ശങ്കർ ദിദിന സന്ദർശനത്തിനായി ഇന്ന് ഇറാനിലേക്ക് പോകും

ഇറാൻ വിദേശകാര്യ മന്ത്രി മുഹമ്മദ് ജവാദ് സാരിഫുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും ഇറാനിയൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുമായും ശ്രീ

അമരാവതിയിൽ വ്യാഴാഴ്ച തുടങ്ങിയ പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്

ഫിഡൽ കാസ്ട്രോ പ്രസിഡന്റായി ചുമതലയേറ്റശേഷം പ്രധാനമന്ത്രി പദത്തിലേക്ക് ആരെയും നിയമിച്ചിരുന്നില്ല

രാജ്യത്ത് പരിഷ്കരണ ന്ദ്രപ്ടികളിലുണ്ടായ പോരായ്മ പരിഹരിച്ച് വികനത്തിന്റെ പാതയില്ലേക്ക് നയിക്കുന്നതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

സ്വന്തം നാട്ടിൽ പരമ്പര സ്വന്തമാക്കിയാൽ ഇന്ത്യയ്ക്ക് അത് നേട്ടമാണ്

മത്സരത്തിന്റെ ദൃക്ഷിസാക്ഷി വിവരണം ആകാശവാണി അൽപസമയത്തിനകം പ്രക്ഷേപണം ചെയ്യും